ആഭ്യന്തരമന്ത്രി അമിത് ഷാ പൊലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു അടുത്ത രണ്ടു വർഷത്തിനകം സംസ്ഥാനത്തെ കാലിത്തീറ്റ വിപണി യുടെ പകുതിയും കേരള ഫീഡ്സിന്റെ സ്വന്തമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാലിനൃത്തിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തി മുഖ്യമന്ത്രി വൈകിട്ട് കോഴിക്കോട് ഞെളിയൻ പറമ്പിൽ ഉദ്ഘാടനം ചെയ്യും ഐ എസ് എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തകർപ്പൻ ജയം

രാഷ്ട്രപതിയുടെ സന്ദർശനം പ്രമാണിച്ച് ഇന്ന് കൊച്ചിയിൽ ഗതാഗത നിയ ന്ത്രണം ഏർപ്പെടുത്തി മുൻ ഉപ പ്രധാനമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ എൽ

അദ്വാനിയും ഇന്ന് കൊച്ചി സന്ദർശിക്കും

ഇവരെ എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ് ജെ എൻ യുവിലെ അക്രമ സംഭവത്തെകുറിച്ച് ആഭ്യന്തര മന്ത്രി അമിത്ഷാ ഡൽഹി പൊലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ജോയന്റ് കമ്മീഷണർതല ഓഫീസറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്താനും അമിത് ഷാ നിർദ്ദേശിച്ചു സംഭവത്തെകുറിച്ച് പൊലീസ് കമ്മീഷണർ അമൂല്യ പട് നായിക്കുമായി സംസാരിച്ച ആഭ്യന്തരമന്ത്രി ആവശ്യമായ നടപടി സ്വീക രിക്കാനും നിർദ്ദേശം നൽകി ് അക്രമസംഭവങ്ങളെ മാനവശേഷി വികസന് മന്ത്രി ഡോക്ടർ രമേശ് പൊക്രിയാൽ നിശാങ്ക് അപലപിച്ചു സംഭവം നിർഭാഗ്യകരമാണെന്നും ഗൌരവമേറിയതാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു വിദ്യാർത്ഥി കൾക്ക് പരിക്കേറ്റ അക്രമ സംഭവത്തിൽ കടുത്ത വേദനയുണ്ടെന്ന് ജെ എൻ യു അധികൃതർ അറിയിച്ചു കൃാമ്പസിനകത്ത് ഒരു തരത്തിലും അക്ര മസംഭവങ്ങൾ അനുവദിക്കില്ലെന്നും സർവകലാശാല എല്ലായ്പോഴും സമാ ധാനത്തിന്റെയും ജനാധിപത്യ പ്രതിഷേധങ്ങളുടെയും പേരിലാണ് അറിയ പ്പെട്ടിരുന്നതെന്നും അധികൃതർ വൃക്തമാക്കി ് അക്രമസംഭവങ്ങളെ ബി ജെ പി ശക്തമായ ഭാഷയിൽ അപലപി ച്ചു സർവകലാശാലകൾ പഠനത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും മേഖ ലയായി തുടരണമെന്ന് പാർട്ടി ടിറ്ററിൽ അറിയിച്ചു കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കഗാന്ധി സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ തുട ങ്ങിയ നേതാക്കൾ ആശുപത്രിയിൽ വിദ്യാർത്ഥികളെ സന്ദർശിച്ചു

വിദേ ശകാര്യ മന്ത്രി എസ് ജയശങ്കർ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംമ്പെയുമായും ഇറാനിയൻ വിദേശകാര്യ മന്ത്രി ജവാദ് സാരിഫുമായും ടെലഫോൺ സംഭാഷണത്തിലാണ് ഇന്ത്യയുടെ ആശങ്ക അറിയിച്ചത്

തൊടുപുഴയിലെ അരിക്കുഴയിൽ കേരള ഫീഡ്സിന്റെ പുതിയ ഫാക്ടറി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടെങ്കിലും വികസന സംരംഭങ്ങൾ ആരംഭിക്കുന്നതിലും പൂർത്തീകരിക്കുന്നതിലും ഗവൺമെന്റ് മികച്ച ശ്രമം നടത്തുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഫെബ്രുവരിയിൽ സംസ്ഥാനം പാലിന്റെ കാര്യത്തിൽ സ്വയംപര്യാപ്തത കൈവരിക്കുമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന മന്ത്രി കെ

മാലിന്യത്തിൽ നിന്ന് വൈദ്യൂതി ഉൽപാദിപ്പിക്കുന്ന സംയോജിത മാലിന്യസംസ്കരണ പദ്ധതി നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം ഇന്ന് വൈകീട്ട് കോഴിക്കോട് ഞെളിയൻ പറമ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവ്വഹിക്കും ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേയും ഇന്ത്യയിലെ അഞ്ചാമത്തെയും പ്ലാന്റാണിത്

കോഴിക്കോട് നഗരസഭയും സമീപ മുൻസിപ്പാലികളും ഗ്രാമപഞ്ചായത്തുകളും പദ്ധതിയുടെ ഭാഗമാകും മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് ഫാറൂഖ് കോളേ ജിൽ ചീഫ് മിനിസ്റ്റേഴ്സ് സ്റ്റുഡന്റ് ലീഡേഴ്സ് കോൺക്ലേവിൽ വിദ്യാർത്ഥി പ്രതിനിധികളുമായി ഇന്നുരാവിലെ ആശയ വിനിമയം നടത്തും സംസ്ഥാ നത്തിന്റെ വികസന നയം രൂപീകരിക്കുന്നതിനായി ഉന്നത വിദ്യാഭ്യാസ വകു പ്പിന്റെ ആഭിമുഖൃത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഉന്നത വിദ്യാ ഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ഗുണമേന്മയ്ക്ക് നിർദ്ദേശങ്ങൾ നവകേരള നിർമ്മിതിയിൽ വിദ്യാർത്ഥി സമൂഹത്തിന്റെ കാഴ്ചപ്പാടും പങ്കാളിത്തവും എന്നീ വിഷയങ്ങളിലാണ് മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തുക കണ്ണൂർ കാലിക്കറ്റ് കാർഷിക വെറ്ററിനറി മലയാളം സംസ്കൃതം കേരള കലാമണ്ഡലം സർവകലാശാലകളിലെ യൂണിയൻ പ്രതിനിധികളും അവയ്ക്കു കീഴിലെ കോളേജ് യൂണിയൻ ഭാരവാഹികളും കോൺക്ലേവിൽ പങ്കെടുക്കും

തൊഴിൽമേഖലയിലെ മികച്ച സ്ഥാപനങ്ങളെ കണ്ടെത്തി ആദരിക്കുന്നതി നായി സംസ്ഥാന തൊഴിൽ നയത്തിന്റെ ഭാഗമായാണ് മികവിന്റെ സർട്ടിഫിക്കറ്റ് പദ്ധതി നടപ്പാക്കുന്നത്

് കൊച്ചിയിൽ ഐ എസ് എൽ ഫുട്ബോളിൽ കേരളാ ബ്ലാസ്റ്റേ ഴ്സിന് തകർപ്പൻ ജയം ജവഹർലാൽ നെഹ്രു സ്റ്റേഡിയത്തിൽ ഹൈദരാ ബാദ് എഫ് സിയെ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് തോൽപിച്ചത് തുടർച്ചയായി ഒൻപത് മത്സരങ്ങളിൽ പരാജയപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ഹൈദരബാദിനെതിരെ സമ്പൂർണ്ണ ആധിപത്യം നേടിയാണ് കളി ച്ചത് തുടക്കത്തിൽ ഒരു ഗോളിന് പിന്നിട്ട് നിന്നതിന് ശേഷമായിരുന്നു ബ്ലാസ്റ്റേ ഴ്സിന്റെ തിരിച്ചുവരവ് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനൊന്ന് പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് ഏഴാം സ്ഥാനത്തും അഞ്ച് പോയിന്റുമായി ഹൈദരാബാദ് എഫ് സി അവസാന സ്ഥാനത്തുമാണ് ഇന്ന് ഒഡീഷ എഫ് സി ചെന്നൈയിൻ എഫ് സിയെ നേരിടും

പിച്ചിൽ ഈർപ്പം കാരണം കളിക്കാൻ കഴിയില്ലെന്ന് അമ്പയർമാർ തീരുമാനിച്ചതിനെ തുടർന്നാണ് ഒരു പന്തുപോലും എറിയാതെ കളി ഉപേക്ഷിച്ചത് രണ്ടാം മത്സരം നാളെ ഇൻഡോറിൽ നടക്കും വെള്ളിയാഴ്ച പൂനെയിലാണ് അവ സാന മത്സരം

മലപ്പുറം എംഎസ്പി ഹയർ സെക്കൻഡറി സ്കൂൾ റിലയൻസ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാരായി മുംബൈയിൽ ഷില്ലോങ് ടീമിനെ രണ്ടിനെതിരെ മൂന്നു ഗോളുകൾക്കാണ് എം

് കർണാടകയിലെ മൂഡബിദ്രിയിൽ അന്തർസർവകലാശാല അത്ല റ്റിക് മീറ്റിൽ കേരളം രണ്ട് സ്വർണമടക്കം ഇന്നലെ ആറ് മെഡലുകൾ നേടി മീറ്റിൽ ആദ്യമായി ഉൾപ്പെടുത്തിയ മിക്സഡ് റിലേയിൽ കാലിക്കറ്റ് സർവ കലാശാലയ്ക്കാണ് സ്വർണം ഈ ഇനത്തിൽ എം ജി സർവകലാശാല വെള്ളി നേടി ഡെക്കാത്ത്ലണിൽ കാലിക്കറ്റിന്റെ കെ

കാലിക്കറ്റ് ആറാം സ്ഥാനത്തും കേരള സർവകലാശാല പത്താം സ്ഥാനത്തുമാണ്

അംബേദ്കർ ഗവൺമെന്റ് മോഡൽ റസിഡൻഷ്യൽ സ്കൂൾ മുന്നിട്ട് നിൽക്കുന്നു

അംബേദ്കർ വിദ്യാനികേതൻ സ്കൂളാണ് രണ്ടാം സ്ഥാനത്ത് കാസർഗോഡ് പറവനടുക്കം ഗവൺമെന്റ് മോഡൽ റസിഡൻഷ്യൽ സ്കൂളാണ് മൂന്നാംസ്ഥാനത്ത് കലോത്സവത്തിന്റെ സമാപന ദിനമായ ഇന്ന് രണ്ട് ഇനങ്ങളിൽ മത്സരം നടക്കും സമാപന സമ്മേളനോ ദ്ഘാടനവും സമ്മാനദാനവും വൈകീട്ട് മന്ത്രി എ

ബാലൻ നിർവ്വഹിക്കും ് കായിക താരങ്ങൾക്ക് പി

സംവരണം നൽകാൻ ഗവർണമെന്റ് ആലോചിക്കുന്നതായി മന്ത്രി എ

അന്തർ ദേശീയതലത്തിൽ മികച്ച പ്രകടനം നടത്തു ന്നവർക്ക് ഗവർണമെന്റ് ജോലിക്കൊപ്പം സാമ്പത്തിക സഹായവും നൽകുമെന്നും മന്ത്രി പറഞ്ഞു

തിരുവനന്തപുരം കനകക്കുന്നിൽ ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച വസന്തോത്സവം പുഷ്പമേള സമാപിച്ചു പ്രകൃതിയെ സ്നേഹിക്കാനും പരി പാലിക്കാനും സന്ദേശം നൽകുന്നതായിരുന്നു വസന്തോത്സവമെന്ന് സമാ പന സമ്മേളനത്തിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു

വൈജാതൃങ്ങളില്ലാതെ ജനങ്ങളെ കൂട്ടിച്ചേർക്കുന്ന പൊതുമേള കൾ ദേശീയോദ്ഗ്രഥന പ്രവർത്തനങ്ങൾക്ക് മാതൃകയാണെന്ന് മന്ത്രി ഡോക്ടർ കെ

മലപ്പുറം കോട്ടക്കുന്നിൽ സൂര്യ മലബാർ കാർണിവൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ് കാർഷിക മേഖലയിൽ മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പാക്കിംഗ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിംഗുമായി കരാറിൽ ട ഏർപ്പെടുമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു

ലയ അന്താരാഷ്ട്ര കലാ കരകൌശല മേള ഇന്ന് സമാപിക്കും

നൽകുമെന്ന് മന്ത്രി ഇ

കോട്ടയം ജില്ലാതല പട്ടയമേള വൈക്കത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ങ്ങളിലെത്തിക്കുന്നതിന് ബി ജെ പി കർണാടക സംസ്ഥാന അധ്യക്ഷൻ നളിൻകുമാർ കട്ടീൽ എം പിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു വ്യാപാരികൾ വഴിയോര കച്ചവട ക്കാർ ഓട്ടോറിക്ഷ ടാക്സി ഡ്രൈവർമാർ തുടങ്ങിയവർക്ക് ലഘുലേഖകൾ കൈമാറി ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗങ്ങളായ പി

കൃഷ്ണദാസ് സി

പത്മനാഭൻ തുടങ്ങിയവർ സംബന്ധിച്ചു

സംസ്ഥാന യൂത്ത് മാർച്ച് ഇന്ന് കോഴിക്കോട്ട് സമാപിക്കും വൈകിട്ട് കട പ്പുറത്ത് സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും